ഉപാധികളോടെ അനുമതി നൽകി സുപ്രീംകോടതി

ലക്ഷത്തിലേക്ക് റഷ്യയിലും ബംഗ്ലാദേശിലും കോവിഡ് കേസുകളിൽ വർധന

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോകാരോഗ്യ സംഘടന ഇന്നലെ പുറത്തിറക്കിയ സിറ്റുവേഷൻ റിപ്പോർട്ടിലാണ് കണക്കുകൾ വൃക്തമാക്കു ന്നത് കേന്ദ്ര സംസ്ഥാന സർക്കൂാരുകളുടേയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും കോവിഡ് പ്രിതിരോധ പ്രവർത്തന ങ്ങളാണ് ഇതിന് കാരണമെന്ന് ക്ട്രേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി

മലപ്പുറം ജില്ലയിൽ നിന്നുള്ള പതിനേഴ് പേർക്കും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള പതിനാറ് പേർക്കും എറണാകുളം ജില്ലയിൽ നിന്നുള്ള പതിനാല് പേർക്കും കൊല്ലം കോട്ടയം ജില്ലകളിൽ നിന്നുള്ള പതിമൂന്ന് പേർക്ക് വീതവും ആലപ്പുഴ തൃശൂർ ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് പേർക്ക് വീതവും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള പതിനൊന്ന് പേർക്കും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒമ്പത് പേർക്കും കോഴിക്കോട് വയനാട് ജില്ലകളിൽ നിന്നുള്ള അഞ്ച് പേർക്ക് വീതവും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള നാല് പേർക്ക് വീതവും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേർക്കു മാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് ഇടുക്കി ജില്ലയിലെ രണ്ട് പേർക്കും തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലെ ഒരാൾക്ക് വീതവുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് തിരുവനന്തപുരം ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചയാൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനാണ്

മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി മുൻസിപ്പാലിറ്റി ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുർപ്പിപ്പാലിറ്റി രാജകുമാരി തൃശൂർ ജില്ലയിലെ വെള്ളാങ്ങള്ലൂർ എന്നിവയാണ് പുതിയ ഹോട്ട് സ് പോട്ടുകൾ

കോവിഡ് മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെ ക്ഷേത്ര കമ്മിറ്റിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് രഥയാത്ര സംഘട്ടി പ്പിക്കാം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ലെന്ന് കണ്ടാൽ ഒഡീഷ സർക്കാരിന് ഉത്സവം നിർത്തി വയ്ക്കാ മെന്നും പരമോന്നത കോടതി വ്യക്തമാക്കി പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ രഥയാത്ര പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കാതെ നടത്താൻ അനുവദിക്കണമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു

കോവിഡ് ബാധിച്ച് മരിക്കുന്ന വൃക്തിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വിശ്ക്കലനം ചെയ്യണമെന്ന് ശ്രീ

അതേസമയം ഡൽഹിയിലെ ക്കർണ്ടെയ്ൻമെന്റ് സോണുകൾ നിർണയിക്കുന്നതിൽ ഭേദഗൃതി പ്രരുത്തണമെന്നും കണ്ടെയ്ൻ മെന്റ് സോണുകളില്പെട്ടു പ്രവർത്തനങ്ങൾ കർശനമായി നിയന്ത്രിക്കുകയും നിതീക്ഷിക്കുകയും വേണമെന്നും ഡോ

പോൾ കമ്മിറ്റ് ശ്ശുപാർശ ചെയ്തു

ഒരു റിപ്പോർട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ഷോയിഗിന്റെ ക്ഷണം സ്വീകരിച്ചാണ് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം

ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ രാജ്നാഥിന്റെ റഷ്യൻ സന്ദർശനം നിർണായകമാകുമെന്നാണ് സൂചന ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ നയതന്ത്ര ബന്ധം ദൃഢമാക്കാൻ സന്ദർശനം സഹായകരമാകുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് ട്വീറ്റ് ചെയ്തു

റഷ്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധന

മെക്സികോ യിൽ ഇന്ന് ആയിരത്തിലധികം പേർ മരിച്ചു

പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്ക് ഇടയിലാണ് ഏറ്റുമുട്ടലു ണ്ടായത് ഇന്ന് രാവിലെ ജമ്മുകാശ്മീരിൽ പാക് സേന നടത്തിയ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു

ഈ രണ്ട് യുദ്ധങ്ങളിലും രാഷ്ട്രീയം പാടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിൽക്കണമെന്ന് ബി

പി അധ്യക്ഷ മായാവതി അഭിപ്രായപ്പെട്ടു

മിസോറാം മുഖ്യമന്ത്രി സൊറാംതങ്കയുമായി സംസാരിച്ച് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയെന്നും കേന്ദ്രത്തിന്റെ പൂർണ്ണ സഹായം ഉറപ്പ് നൽകിയെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

പ്രദേശത്ത് തെരച്ചിൽ നടന്നുവരുന്നതായി പൊലീസ് അറിയിച്ചു

പകർച്ചവ്യാധികൾ നേരിടുന്നതിനുള്ള അടിസ്ഥാന സൌകര്യ വികസന ത്തിനുൾപ്പെടെയാണ് വ്ടുക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയം തുക അന്റ്റ്യ്ട്ടിച്ചിരിക്കുന്നത്